വോട്ടെണ്ണൽ രാവിലെ എട്ടിന് ആരംഭിക്കും സംസ്ഥാനത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ഹൈക്കമാന്റിന് കൈമാറും ബി ജെ പി സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ പൊളിക്കാൻ തയ്യാറാക്കിയ കർമ്മപ ദ്ധതി ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ രാവിലെ സമർപ്പിക്കും പിറവം പള്ളി വിഷയത്തിൽ ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോ ടതിക്ക് കൈമാറും വയനാട്ടിലെ രാത്രിയാത്രാ വിലക്കിൽ ബദൽപാതകൾ വികസിപ്പിക്കാൻ കേന്ദ്ര നിർദ്ദേശം

പാലായുടെ ജനവിധിയിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം നിയമ സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ എട്ടിന് ആരംഭിക്കും

പാലാ കാർമൽ പബ്ലിക് സ്കൂളാണ് വോട്ടെണ്ണൽ കേന്ദ്രം രാമപുരം പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യറൌണ്ടിൽ എണ്ണുന്നത് യു ഡി എഫിലെ ജോസ് ടോമും എൽ ഡി എഫിലെ മാണി സി കാപ്പനും എൻ ഡി എയിലെ എൻ ഹരിയും തമ്മി ലായിരുന്നു പ്രധാന മത്സരം സംസ്ഥാനത്ത് അഞ്ചു മണ്ഡലങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെ ടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിപട്ടിക ഇന്ന് ഹൈക്കമാന്റിന് കൈമാറും വട്ടിയൂർക്കാവ് കോന്നി അരൂർ സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പാർട്ടിക്കുള്ളിലെ അഭിപ്രായവൃത്യാസം ശക്തമാണ് യു ഡി എഫിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ പ്രഖ്യാ പിച്ചിരുന്നു എൽ ഡി എഫ് ഇന്നലെ അഞ്ചു സ്ഥാനാർത്ഥികളെയും പ്രഖ്യാ പിച്ചു ബി ജെ പി സ്ഥാനാർത്ഥികളെ ഇന്ന് കേന്ദ്രനേതൃത്വം പ്രഖ്യാപിച്ചേ ക്കും സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ പൊളിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കിയ കർമ്മപദ്ധതി ഉൾപ്പെടുത്തി ചീഫ് സെക്രട്ടറി ഇന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സ്മർപ്പിക്കും ഫ്ളാറ്റുകളി ലെ വൈദ്യുതി കുടിവെള്ള കണക്ഷനുകൾ വിച്ചേദിച്ചതും പൊളിച്ചുനീക്കൽ സംബന്ധിച്ച പ്രാരംഭ നടപടികളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്ളാറ്റു കളിൽ നിന്ന് താമസക്കാരെ നാളെ മുതൽ ഒഴിപ്പിച്ചുതുടങ്ങുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്

എന്നാൽ ഒരു തരത്തിലും ഫ്ളാറ്റിൽ നിന്ന് ഒഴിഞ്ഞുപോകില്ലെന്ന് താമസക്കാർ വ്യക്തമാക്കി പിറവം സെന്റ് മേരീസ് പള്ളി തർക്ക വിഷയത്തിൽ എറണാ കുളം ജില്ലാ കലക്ടർ ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും കോടതി നിർദ്ദേശപ്രകാരം പൂട്ടിയ പള്ളിയുടെ താക്കോലും അദ്ദേഹം കൈമാറും സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിനെതിരെ ഓർത്തഡോക്സ് വിഭാഗം നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കലക്ടർ പള്ളി ഏറ്റെടുത്തത് പള്ളിയുടെ ഗേറ്റ് പൂട്ടി ഉള്ളിൽ കഴിഞ്ഞിരുന്ന യാക്കോബായ മെത്രാപൊലീത്തമാരെയും വൈദികരെയും വിശാസികളെയും ഇന്നലെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു നടപടിയിൽ പ്രതിഷേധിച്ച് യാക്കോബായ വിഭാഗം പിറവത്ത് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് വയനാട്ടിലെ രാത്രിയാത്രാ വിലക്കിൽ ഇപ്പോഴത്തെ സ്ഥിതി തുട രാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കേരളത്തോട് ആവശ്യപ്പെട്ടു വന മേഖലയിൽ മേൽപ്പാല പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഈ നിർദ്ദേശം നൽകിയത്

കേന്ദ്ര സെക്രട്ടറിതല യോഗം മേൽപ്പാലം വിഷയം ചർച്ച ചെയ്തതാണെന്നും ബദൽ പാതകൾ ശക്തിപ്പെടുത്താനാണ് അവ രുടെ നിർദ്ദേശമെന്നും പ്രകാശ് ജാവ്ദേക്കർ മറുപടിയിൽ വ്യക്തമാക്കി

അപകടത്തിൽപെടുന്നവർക്കും അടിയന്തര വൈദ്യസഹായം ആവശ്യമായവർക്കും എത്രയും വേഗം ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാക്കാനും ഗവൺമെന്റ് ്ധനസഹായം അനുവദിക്കാനും ലക്ഷ്യമിടുന്ന ബില്ലിന്റെ കരടും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപക ടത്തിൽപെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് നിയമനടപടിക ളിൽ നിന്ന് സംരക്ഷണം നൽകുന്നർവ്യവസ്ഥ ഉൾപ്പെടുത്തിയാണ് എമർജൻസി മെഡിക്കൽ കെയർ ആന്റ് പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ് സമരി റ്റൻ ബില്ലിന്റെ കരട് തയ്യാറാക്കിയത് പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എം

സമ്മേളന കാലത്ത് ഉന്നയിക്കേണ്ട വിഷയങ്ങൾ തയ്യാറാക്കാനാണ് തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ യോഗം ചേരുന്നത്

ദക്ഷിണേഷ്യൻ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത് അനിവാരൃമാണെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു കശ്മീ രിലെ ഇന്ത്യൻ നടപടി പിൻവലിക്കുന്നതുവരെ ഇന്ത്യയോടൊപ്പം വേദി പങ്കി ടില്ലെന്ന് അറിയിച്ച് പാക് വിദേശകാരൃമന്ത്രി ഷാ മഹമൂദ് ഖുറൈഷി സാർക്ക് കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച നടപടിയോട് പ്രതികരിക്കുകയായി രുന്നു ജയശങ്കർ

ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ദോഹയിൽ തുടക്കമാ കും

് ബംഗലൂരുവിൽ ഏഷ്യൻ എയ്ജ് ഗ്രൂപ്പ് നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ മലയാളി താരം സാജൻ പ്രകാശിന് സ്വർണം വ്യക്തിഗത ടീം ഇനങ്ങളിൽ നിന്ന് മൂന്ന് സ്വർണവും രണ്ട് വെള്ളിയുമാണ് സാജൻ നേടിയത്

രങ്ങളിലേക്ക് എത്തുകയാണെന്ന് മന്ത്രി എം

ദേശീയ ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഇടുക്കി മുരിക്കാശ്ശേരി പാവനാത്മാ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വർണ്ണാഭമായ ഘോഷ യാത്രയോടെയാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്

പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പാഠം ഒന്ന് പാടത്തേക്ക് പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി കൊല്ലം ജില്ലയിൽ പദ്ധതി ചിറക്കര പാടശേഖരത്തിൽ ജി

ജയലാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിനുശേഷം ചിറക്കര പഞ്ചായ ത്തിലെ സ്കൂൾ കുട്ടികൾ കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയോടെ എംഎൽഎയുടെ നേതൃത്വത്തിൽ പാടത്ത് ഞാറ് നട്ടു തൃശൂർ വയനാട് ഉൾപ്പെടെ ജില്ല കളിലും പദ്ധതിക്ക് തുടക്കമായി

യോഗം തീരുമാനിച്ചു

രാജ്യാന്തര സമ്മേളനം തിരുവനന്തപുരത്ത് നാളെ ഗവർണർ ആരിഫ് മുഹ മ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിലെയും വിദേശത്തെയും ടൂറിസം വിദഗ്ദ്ധരും മുതിർന്ന ഉദ്യോഗസ്ഥരും രണ്ടു ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും

നങ്ങൾ മന്ത്രി എം

ആംബുലൻസുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും മന്ത്രി നിർവഹിച്ചു

ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു പുതിയ ഓഫീസ് കെട്ടിടങ്ങൾക്കും ക്വാർട്ടേഴ്സുക ൾക്കുമായി നിശ്ചിത തുക ചെലവഴിക്കുമെന്നും വില്ലേജ് ഓഫിസ് ജീവനക്കാർക്കായി കൂടുതൽ കാർട്ടേഴ്സുകൾ നിർമിക്കുമെന്നും മന്ത്രി പറഞ്ഞു ് അട്ടപ്പാടി സമ്പൂർണ സാക്ഷരതാ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും

രാവിലെ അഗളി ഇ

രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും അട്ടപ്പാടിയിലെ സമഗ്ര വിദ്യാഭ്യാസ വികസന ത്തിനായി വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ച് നടത്തുന്ന സമൃദ്ധിയുടെ കാലം പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഗോത്രഭാഷാ സഹായ പുസ്തക പ്രസിദ്ധീകരണത്തിന് തുടക്കം കുറിക്കും

പാലക്കാട് പട്ടാമ്പി ജി

പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിട ഉദ്ഘാടനവും സ്കൂൾ ബസുകളുടെ ഫ്ളാഗ് ഓഫും ഉച്ചയ്ക്ക് മന്ത്രി പ്രൊഫ

രവീന്ദ്രനാഥ് നിർവഹിക്കും

പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും

കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിലെ പാവങ്ങാട് കോര പ്പുഴ റോഡ് പുനരുദ്ധാരണത്തോടൊപ്പം ജപ്പാൻ കുടിവെള്ള പൈപ്പ് ലൈൻ ജോലിയും നവംബറിൽ പൂർത്തീകരിക്കാൻ മന്ത്രി എ

കോഴിക്കോട്ട് ചേർന്ന അവലോകനയോഗത്തിലാണ് മന്ത്രി യുടെ നിർദ്ദേശം

സംരക്ഷണ റാലിയിൽ ഒരു ലക്ഷം പേരെ അണി നിരത്താൻ ലീഗ് ഹൌസിൽ ചേർന്ന ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരുടെ മേഖലാ യോഗം തീരുമാനിച്ചു ഉച്ചകഴിഞ്ഞ് കോഴിക്കോട്ട് കടുപ്പുറം കേന്ദ്രീകരിച്ച് റാലി ആരംഭിക്കും തൃശൂർ ജില്ലയിലെ അഴീക്കോട്ട് മൾട്ടി പർപ്പസ് സൈക്ലോൺ ദുരി താശ്വാസ അഭയകേന്ദ്രത്തിന് മന്ത്രി ഇ

തീരമേ ഖലയിൽ ഇത്തരം കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മാണം

ങ്ങൾ ലഭ്യമല്ലാത്ത പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് എം

രാഘവൻ എം

മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു

ഒരു മാസത്തോളം കാത്തിരുന്നിട്ടും സ്റ്റെന്റ് ലഭിക്കാത്തതിനെ തുടർന്ന് മരിച്ച മേപ്പാടി സ്വദേശി അബ്ദുറഹ്മാന്റെ കുടുംബത്തിന് ഗവൺമെന്റ് ധന സഹായം നൽകണമെന്നും എം

ആവശ്യപ്പെട്ടു

സെന്റർ ഫോർ ആർട്ട് ആൻഡ് കൾച്ചർ ഏർപ്പെടുത്തിയ കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് നൽകും